കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കുന്നു

ബലിയർപ്പിച്ചവരോട് നാം കട്ട്പ്പ്പ്ട്ടിരിക്കുന്നതായി രാഷ്ട്രപതി രാംനാഥ് കോപ്പിന്ദ്

ഗവൺമെന്റ് രൂപപ്പത്ക്കരണത്തിന് കളമൊരുങ്ങി

പൂർത്തിയാക്കാൻ എല്ലാ ജില്ലകളിലും കോടതികൾ സ്ഥാപിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം

മത്സരങ്ങൾക്ക് കോഴിക്കോട് തുഷാരഗിരിയിൽ തുടക്കം

ദിനാചരണത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ്ങ് മൂന്ന് സേനാ തലവൻമാർ മറ്റ് പ്രമുഖർ തുടങ്ങിയവർ ധീരയോദ്ധാക്കളുടെ ശ്രീനഗറിലെ സ്മൃതിമണ്ഡപത്തിൽ അനുസ്മരണ പുഷ്പചക്രം സമർപ്പിച്ചു

രാജ്യസുരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ചവരോട് നാം എന്നും കടപ്പെട്ടിരിക്കുന്നതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുസ്മരണപ്രഭാഷണത്തിൽ പറഞ്ഞു സേനയുടെ അർപ്പണബോധവും ധീരതയും അടയാളപ്പെടുത്തുന്നതാണ് കാർഗിൽ ദിവസമെന്ന് പ്രധാനുമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു പാകിസ്ഥാൻ നിഴൽയുദ്ധം തുടർന്നാൽ ഇന്ത്യ വീണ്ടും മിന്നൽ ആക്രമണത്തിന് മടിക്കില്ലെന്ന് കരസേനാ മേധാവി ബിപിൻ റാവത്ത് ജമ്മുവിലെ ദ്രാസിൽ ആകാശവാണിയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

വൈകിട്ട് ആറിന് തന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്ന് ശ്രീ

കഴിഞ്ഞ ദിവസമാണ് എച്ച് ഡി കുമാരസ്വാമിയുടെ നേതൃത്വത്തിൽ ജനതാദൾ എസ് കോൺഗ്രസ്സ് സബ്ദ്യു ഗവൺമെന്റ് സഭയിൽ വിശ്വാസവോട്ടിൽ പരാജയപ്പെട്ടതിനെ ്തുടർന്ന് രാജിവച്ചത് തുടർന്ന് ഉടലെടുത്ത രാഷ്ട്രീയ അനീശ്ചിത്ത്വത്തിന് വിരാമമിടുന്നതാണ് യെദ്യൂരപ്പയുടെ ഗവൺമെന്റ് രൂപവർക്കരണം ഇന്നലെ കോൺഗ്രസ്സ് ജെ

യു സഖ്യത്തിൽപ്പെട്ട് മൂന്ന് വിമത എം എൽ എ മാരെ സ്പീക്കർ കെ

മറ്റ് വിമതരുടെ കാര്യത്തിൽ സ്പീക്കറുടെ തീരുമാനം വൈകുകയാണ്

ന്യൂഡൽഹിയിൽ ചേർന്ന പാർലമെന്ററി കാര്യ മന്ത്രിസഭാ സമിതിയുടേതാണ് തീരുമാനം

വിമാന സർവ്വീസ് കണ്ണൂർ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ദുബായിലേക്കുളള പ്രതിദിന സർവ്വീസ് ആരംഭിച്ചു

മാനേജിംഗ് ഡയറക്ടർ വി

കൈപ്പമംഗലത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എ

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആൻണി മുനിയറ

പി കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിങ്ങ് ഷെഖാവത്തിന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു നിന്ന് നിലവിൽ കേരളത്തിൽ പാലക്കാടും കാസർകോടുമാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്

ഡാം പകൽ സമയത്ത് മാത്രം തുറന്ന് വിടാനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു

ചിലയിടങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു

കൂടരഞ്ഞിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസ് തൊണ്ടയാട് ജംഗ്ഷനിൽ വച്ചാണ് അപകടത്തിൽപെട്ടത്

ഐ ജി ഓഫീസ് മാർച്ചിൽ പോലീസ് അതിക്രമം ഉണ്ടായില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് സി

കളക്ടറുടെ അന്വേഷണറിപ്പോർട്ട് വരട്ടെയിന്നും കാനം കൂട്ടിച്ചേർത്തു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു

സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് പുലിക്കയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ലൈസൻസ് കണ്ണൂർ ജില്ലയിൽ ലൈസൻസ് ഇല്ലാതെ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഉടൻ ലൈസൻസ് നേടണമെന്ന് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അറിയിച്ചു ജില്ലയിൽ ലിഫ്റ്റ് തകരാർ മൂലം ആളുകൾ കുടുങ്ങിപ്പോകുന്ന സംഭവങ്ങൾ വ്യാപകമായി വിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നടപടി

സാന്ത്വന്റുമേകാൻ അയൽക്കണ്ണികൾ എന്ന പേരിൽ പാലിയേറ്റീവ് വാർഡുതില് നാട്ടുകൂട്ടം രൂപികരിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക